അസമിലും പശ്ചിമബംഗാളിലും ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമ്നിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചു

ഒരു റിപ്പോർട്ട് വോയ്സ് പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി ബഹളം വച്ചതിനെ തുടർന്ന് ലോക്സഭയിൽ നടപടികൾ ഇന്ന് പലതവണ നിർത്തിവച്ചു സമരം തുടരുന്ന കർഷകരിൽ പലരും സമരഭൂമിയിൽ വച്ച് മരിച്ചതായി അഭിപ്രായപ്പെട്ട കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി ഇത് സംബന്ധിച്ച് ചർച്ച അനുവദിക്കണമെന്ന് ആവശ്യഉപ്പട്ടു

ജനകീയ വിഷയങ്ങൾ ചൂർച്ചു ചെയ്യാനുള്ള വേദിയാണ് പാർലമെന്റ് എന്ന് ഓർമ്മിപ്പിച്ച അദ്ദേഹം അംഗങ്ങൾ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെട്ടു രാജ്യസഭയിലും പ്രതിപക്ഷം ബഹളം തുടർന്നു

കാർഷിക നിയമങ്ങൾ ചർച്ച ചെയ്യണ മെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നോട്ടീസ് നൽകിയിരുന്നുവെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു ബജറ്റ് സെഷനിൽ വിഷയം ചർച്ച ചെയ്തതാണെന്ന് രാജ്യസഭാധ്യക്ഷൻ എം വെങ്കയ്യ നായിഡു പറഞ്ഞു

സാർവത്രികവും താങ്ങാനാകുന്നതുമായ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ആരോഗൃ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പ്രധാന പദ്ധതികളായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗൃ യോജന ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയ്ക്കായി ഈ തുക ഉപയോഗപ്പെടുത്തും

കാർഷിക നിയമത്തിനെതിരെ പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് ബിൽ പാസാക്കിയത് ലോക്സഭ കഴിഞ്ഞമാസം ഈ ബില്ല് പാസ്സാക്കിയിരുന്നു

ദേശീയ അന്തർദേശീയ മധൃസ്ഥ കേന്ദ്രമായി ഇന്ത്യ മാറുന്നത് സാമ്പത്തിക വികസനത്തിന് ശക്തിപകരുമെന്ന് നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു

മുന്നണികളിൽ സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിലാണ്

കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഡൽഹിയിൽ തുടരുകയാണ് ആദ്യ പട്ടികയ്ക്ക് ഇന്ന് അന്തിമ രൂപമാകുമെന്നാണ് സൂചന ബ്ലിജെപി സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നാളെ ചേരുന്നു പ്തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിനുശേഷം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്

പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം മറ്റന്നാളാണ് രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പത്രികാ സമർപ്പണവും പുരോഗമിക്കുകയാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി നന്ദിഗ്രാമം നിയമസഭാ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു

ഇന്നലെ രാജിപ്പിച്ചു മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിംഗ് റാവത്താണ് പുതിയ മുഖ്യമ്ന്ത്രിയുടെ പേര് നിർദ്ദേശിച്ചത്

പി സഖ്യ സർക്കാർ വിശ്വാസവോട്ട് നേടി

ഒരംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു പ്രതിപക്ഷ നേതാവ് ഭൂപേന്ദർ സിങ്ങ് ഹൂഡയാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത്

കോഴിക്കോട് ജില്ലയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത്

വിശദാംശങ്ങളുമായി അഞ്ജു

എം ആർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

തമിഴ്നാട് ഗവർണർ ബൻവാരിലാൽ പുര്രോഹിത് ചടങ്ങിൽ അദ്ധ്യക്ഷനായി

വെല്ലൂരിലെ സുവർണ്ണ ക്ഷേത്രവും രാഷ്ട്രപതി സന്ദർശിക്കും

ചാക്കോ പാർട്ടിയിൽ നിന്ന് രാജിവച്ചു അദ്ദേഹം സോണിയാഗാന്ധിക്ക് രാജിക്കത്ത് നൽകി കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ താൻ നിരാശനാണെന്നും കേന്ദ്രനേതൃത്വം ഫലപ്രദമായി ഇടപെടുന്നില്ലെന്നും ഡൽഹിയിൽ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്ഥാനാർത്ഥികളെ ഗ്രൂപ്പടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നതെന്നും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളല്ലെന്നും ശ്രീ പി

ഭാവി പദ്ധതികളെക്കുറിച്ച് അദ്ദേഹം ഒന്നും വെളിപ്പെടുത്തിയില്ല

അമേരിക്കൻ പ്രസിഡന്റ് ആസ്ട്രേലിയൻ പ്രധാനമന്ത്രി ജപ്പാൻ ്ര പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖരും ഉച്ചകോടിയിൽ സംബന്ധിക്കും മറ്റന്നാളാണ് ഉച്ചകോടി

എസ് കരഞ്ച് ഇന്ന് മുംബൈയിലെ നാവിക കപ്പൽ നിർമ്മാണശാലയിൽ കമ്മീഷൻ ചെയ്തു

എസ് കരഞ്ച് പടിഞ്ഞാറൻ നാവിക കമാൻഡിന്റെ അന്തർവാഹിനി കപ്പലുകളുടെ ഭാഗമാകും